കേന്ദ്രം

പുതിയ പാർലമെന്റ് മന്ദിരത്തിന് പ്രധ്നാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച തറക്കല്ലിടും

ചരമ വാർഷികം ഇന്ന്

കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ഇന്ന് അവസാനിക്കും

കാർഷിക വിളകൾക്കുള്ള താങ്ങുവില നിർത്തലാക്കില്ലെന്ന് വീണ്ടും കർഷകർക്ക് ഉറപ്പുനൽകുന്നതായി ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണവേ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു കഴിഞ്ഞ വർഷത്തിനിടെ സുപ്രധാന പരിഷ്കാരങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയിൽ കൊണ്ടുവരാനായെന്നും ശ്രീ

മി വിശദാംശങ്ങളുമായി കരോൾ എബ്രീഹാം

രാജ്യത്തിന്റെ വൈവിധ്യം പ്രതിഫലിപ്പിക്കുന്ന ഈ ജനാധിപത്യ ക്ഷേത്രം സ്വയംപര്യാപ്ത ഭാരതത്തിന് ഉദാഹരണം ആയിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

താജ്മഹൽ ആഗ്ര ഫോർട്ട് സികന്ദ്ര തുടങ്ങിയ പ്രധാന വിനോദ സഞ്ചാരകേന്ദ്രങ്ങളെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളു മായി പദ്ധതി ബന്ധിപ്പിക്കും

തുടർച്ചയായ ഒൻപതാം ദിവസവും പ്രതിദിന രോഗമുക്തരുടെ എണ്ണം രോഗം സ്ഥിരീകരിച്ചവരെക്കാൾ കൂടുതൽ ആണ്

രോഗ സ്ഥിരീകരണ നിരക്ക്

ഫ്രാൻസ് ഇറ്റലി ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണ് അമേരിക്ക കഴിഞ്ഞാൽ രോഗബാധയിൽ മുന്നിട്ടുനിൽക്കുന്നത്

സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവ്ൾക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കുമായി നിലകൊണ്ട് ് ഡോ അംബേദ്കർ പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു പ്രിക് രാജ്യത്തിനായുള്ള അംബേദ്കുറുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്നും ക്ട്ബ്ാബാ സാഹിബിന്റെ ചിന്തകളും ദർശനങ്ങളും ലക്ഷക്കണ്ക്കിന്റ് ആളുകൾക്ക് ഇന്നുംപ്രചോദനമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ദി ടിറ്ററിൽ കുറിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ കൊട്ടിക്ക ലാശം അനുവദിക്കില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്

കോ വിഡ് മാനദണ്ഡം പാലിക്കാതെ ഇതുസംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം നടപടിയുണ്ടാകും

പരസ്യങ്ങൾ നിലവിലുള്ള നിയമങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ളതാകരുതെന്നും നിർദേശത്തിൽ പറയുന്നു

ശ്വാസകോശ സംബന്ധിയായ രോഗത്തെത്തൂടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം

കാലിഫോർണിയ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്ത് വന്നതോടെയാണ് ഇത്

ഇരുവിഭാഗങ്ങൾക്കിടയിലെയും തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഇന്ന് തുടങ്ങാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷനും ഇടനിലക്കാർ അടങ്ങുന്ന സംഘത്തിന് നിർദ്ദേശം നൽകി ബ്രിട്ടണും യൂറോപ്യൻ യൂണിയനും ഇടയിലെ അഭിപ്രായ വൃത്യാസങ്ങൾ ഗുരുതരമാണെന്നും അത് രമ്യമായി പരിഹരിക്കാൻ നടപടികൾ ആവശ്യമാണെന്നും ഇരുനേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി

്കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു

എൽ ഫുട്ബോ്ളിൽ ഇന്ന് രണ്ട് മത്സരം

ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഇൌസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ഇതോടെ നാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് രണ്ടാം സ്ഥാനത്താണ്

മേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദേശം നൽകിയിട്ടുണ്ട്

രാവിലെയും വൈകുന്നേരവും ഓരോ ഏഴ് മിനിറ്റിനിടയിലും മോട്രോ സർവീസ് ലഭ്യമാക്കുന്ന തരത്തിൽ സമയം ക്രമീകരിക്കും

പത്തനംതിട്ട എറണാകുളം ഇടുക്കീ മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട്

കോവിഡ് പ്രതിരോധ മരുന്ന് ആയ കോവാക്സിൻ മൂന്നാംഘട്ട പരീക്ഷണത്തിൽ ശ്രീ വിജ് പങ്കെടുത്തിരുന്നു